വയനാട് മെഡിക്കൽ കോളേജിന് ചുണ്ടേൽ എസ്റ്റേറ്റ്ഭൂമി അനു യോജ്യമാണെന്ന് വിദഗ്ധസംഘം കളക്ടർക്ക് റിപ്പോർട്ട് നൽകി

അയോധ്യ വിഷയത്തിൽ അനാവശ്യ പ്രസ്താവനകൾ നടത്തുന്ന തിൽനിന്ന് വിട്ടുനിൽക്കാൻ കേന്ദ്രമന്ത്രിമാരോട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ആവശ്യപ്പെട്ടു സൌഹാർദത്തിന്റെയും ഐക്യത്തിന്റെയും അന്ത രീക്ഷം കാത്ത് സൂക്ഷിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

കോടതിവിധി വിജയത്തിന്റെയും പരാജയത്തി ന്റെയും കണ്ണാടിയിലൂടെ നോക്കിക്കാണരുതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അയോധ്യക്കേസിൽ സുപ്രീംകോടതിവിധി എന്തായാലും സ്വീകരി ക്കുമെന്ന് ജംഇയ്യത്ത് ഉലമായെ ഹിന്ദ് പ്രസിഡന്റ് മൌലാന സയ്യിദ് അർഷദ് മദനി വൃക്തമാക്കി മുസ്ലിംങ്ങൾ ഉത്തരവിനെ മാനിക്കണമെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു രാജ്യത്തെ പിന്നാക്കം നിൽക്കുന്ന ജില്ലകളെ ദേശീയ ശരാശരിയിൽ കൊണ്ടുവരുന്നതിന് സമയക്രമം നിശ്ചയിക്കേണ്ടത് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇത്തരം ജില്ലകളുടെ ചുമതല യുവ ഓഫീസർമാരെ ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു

ആദിവാസി കുട്ടികളുടെ വിദ്യാ ഭ്യാസത്തിനും ആരോഗ്യസംരക്ഷണത്തിനും പ്രാധാന്യം നൽകണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

ഐയും നൽകുമെന്ന് ധനമന്ത്രി നിർമല സീതാരാമൻ ന്യൂഡൽഹിയിൽ അറിയിച്ചു ബദൽ നിക്ഷേപനിധിയെന്ന പേരിൽ തുടങ്ങുന്ന പ്രത്യേക പദ്ധതിയിൽ നിന്നാണ് സഹായം ലഭ്യമാ ക്കുക നിധിയിൽ ചേരാൻ കൂടുതൽപേർ താൽപര്യം പ്രകടിപ്പിച്ചിട്ടു ണ്ടെന്നും പിന്നീടവർ പദ്ധതിയിൽ ചേർന്നേക്കാമെന്നും ധനമന്ത്രി അറി യിച്ചു

സൌജന്യം ലഭിക്കാത്തവർക്ക് കുറഞ്ഞനിരക്കിൽ പദ്ധതിയിൽ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കും

ശക്തമായ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല സ്ഥാപിച്ച് വീടുക ളിലും ഓഫീസുകളിലും അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ നൽകുന്ന താണ് പദ്ധതി അടുത്തവർഷം ഡിസംബറോടെ പദ്ധതി പൂർത്തീകരി ക്കുകയാണ് ലക്ഷ്യം കാസർകോട് ജില്ലയിലെ ചെറുവത്തൂർ വില്ലേജ് വിഭജിച്ച് തുരുത്തി എന്ന പുതിയ വില്ലേജ് രൂപീകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു

അനുപമയെ അധിക ചുമതല നൽകി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു

ഇതുസംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റും ജർമൻ ഡവലപ്മെന്റ് ബാങ്കും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തിരുവനന്ത പുരത്ത് കരാർ ഒപ്പിട്ടു

അടുത്തവർഷം മെയ് മാസം ആരംഭിച്ച് അഞ്ച് വർഷംകൊണ്ട് പദ്ധതി പൂർത്തിയാക്കും

എത്രയുംവേഗം ഫോണുകൾ അർഹരായവർക്ക് എത്തിക്കുമെന്ന് മന്ത്രി പറഞ്ഞു വയനാട് മെഡിക്കൽ കോളേജിന് ചുണ്ടേൽ എസ്റ്റേറ്റ്ഭൂമി അനുയോ ജൃമാണെന്ന് വിദഗ്ധസംഘം കളക്ടർക്ക് റിപ്പോർട്ട് നൽകി

വിഷയത്തിന്റെ ഗൌരവം കണക്കിലെടുത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ സ്കൂളുകളിൽ ശക്തമായി ഇടപെടൽ നടത്തണമെന്ന് ആസൂത്രണസമിതി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ് കെ

കൊച്ചി പിറവംപള്ളികേസിലെ വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് യാക്കോബായസഭ നൽകിയ തിരുത്തൽഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും ചീഫ്ജസ്റ്റിസിന്റെ നേതൃത്തിൽ അഞ്ച് ജഡ്ജിമാരായിരിക്കും ഉച്ചയ്ക്ക് ചീഫ് ജസ്റ്റിസിന്റെ ചേമ്പറിൽ ഹർജി പരിഗണിക്കുക വാളയാർ കേസ് പുനരന്വേഷിക്കണമെന്ന് ആശ്യപ്പെട്ട് ബി

പി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സൂരേന്ദ്രൻ നയിക്കുന്ന നീതിരക്ഷാ മാർച്ച് ഇന്ന് പാലക്കാട് കലക്ടറേറ്റിൽ സമാപിക്കും

പി ദേശീയ നിർവാഹക സമിതി അംഗം പി

കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും

ഡൽഹിയിൽ ആദ്യകളിയിൽ ഇന്ത്യ ബംഗ്ലാ ദേശിനോട് തോറ്റിരുന്നു മഹ ചുഴലിക്കാറ്റിനെത്തുടർന്ന് കനത്ത മഴപെ യ്യുന്ന രാജ്കോട്ടിൽ കളി മുടങ്ങുമോ എന്ന ആശങ്കയുണ്ട് ഹൈദരാബാദിൽ ഐ

ഫുട്ബോളിൽ ഹൈദരാബാദ് എഫ്

യെ ഒരു ഗോളിന് തോൽപ്പിച്ച് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി

ഗോവയുമായി ഏറ്റുമുട്ടും നാളെ കേരളാ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ ഒഡീഷ എഫ് സിയെ നേരിടും കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ദക്ഷിണമേഖലാ യോഗ്യതാമത്സരത്തിൽ ഇന്ന് എ ഗ്രൂപ്പിലെ രണ്ടാംമത്സരത്തിൽ ആന്ധ്രപ്രദേശ് തമിഴ്നാടിനെ നേരിടും

ഇ കോളേജ് കൊണ്ടോട്ടി ചാംപ്യൻമാരായി ഫൈനലിൽ കോഴിക്കോട് ദേവഗിരി സെന്റ്ജോസഫ് കോളേജിനെ എതിരില്ലാത്ത മുന്ന് ഗോളുകൾക്കാണ് അവർ തോൽപ്പിച്ചത് ലൂസേഴ്സ് ഫൈനലിൽ ഫാറൂഖ് കോളെജിനെ ഒന്നിനെതിരെ നാല് ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഐ

കോളെജ് പെരിന്തൽണ്ണ മൂന്നാംസ്ഥാനം നേടി ഗുണ്ടൂരിൽ സമാപിച്ച ദേശീയ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ ഹരി യാന തുടർച്ചയായി മൂന്നാംതവണയും ചാമ്പൃന്മാരായി പെൺകുട്ടിക ളിൽ കേരളമാണ് ജേതാക്കൾ

സ്വർണ നേട്ടത്തിന്റെ ഹരിയാനക്കൊപ്പമെത്തിയ കേരളം തമിഴ്നാടുമായി രണ്ടാം സ്ഥാനം പങ്കി ട്ടു

ക്രോസ് കൺട്രി മത്സരം രാവിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കവാടത്തിൽ നിന്ന് തുടങ്ങി

ശനിയാഴ്ച സമാപിക്കും കോട്ടയം റവന്യുജില്ലാ കായികോത്സവം പാലാ മുനിസിപ്പൽ സ്റ്റേഡി യത്തിൽ ഇന്നാരംഭിക്കും മൂന്നുദിവസത്തെ കായികോത്സവത്തിൽ പന്ത്രണ്ട് ഉപജില്ലുകളിൽനിന്ന് രണ്ടായിരത്തഞ്ഞൂറോളം കായികതാരങ്ങൾ പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസമാഹരണത്തിനായി സംഘടിപ്പിക്കുന്ന കൊല്ലം ഫോർ കേരളം ദേശീയ കബഡി വോളിബോൾ ടൂർണമെന്റിന് ഇന്ന് തുടക്കമാകും വൈകിട്ട് ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ മന്ത്രി ഇ

ജയരാജൻ ഉദ്ഘാടനം ചെയ്യും ഇന്ത്യൻ നേവിയും കേരള പോലീസും തമ്മിലാണ് ആദ്യ മത്സരം

കാലിക്കറ്റ് ഹയർസെക്കൻഡറി കൊളത്തറയ്ക്കാണ് രണ്ടാംസ്ഥാനം

എമ്മിന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ ഇന്ന് വൈകിട്ട് നീതിക്കായി ജനതയുടെ കൂട്ടായ്മ പരിപാടി സംഘടിപ്പിക്കുമെന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി എം

ഫസൽ വധക്കേസിൽപ്പെട്ട കാരായി രാജനും കാരായി ഉൾപ്പെടെ ചന്ദ്രശേഖരനും എടു പേർ നീതിനിഷേധിക്കപ്പെട്ടവരാണെന്നും അദ്ദേഹം കണ്ണൂരിൽ പറഞ്ഞു രാജ്യത്തെ സാമ്പത്തികനില തകർന്നതായും തൊഴിലില്ലായ്മ വർധി ച്ചതായും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന്യ പ്രസിഡന്റ് ഡീൻ കുര്യാ ക്കോസ് എം

കുറ്റപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റിനെതിരെ കോൺഗ്രസ് ദേശീയതലത്തിൽ നടത്തുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി ഇടുക്കി ഡി

ചെറുതോണിയിൽ സംഘടിപ്പിച്ച സായാഹ്ന ധർണ ഉദ്ഘാ ടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ പയ്യന്നൂരില്ലെ പഴയ പോലീസ് സ്റ്റേഷനിൽ ആരംഭിക്കുന്ന ഗാന്ധി സ്മൃതി മ്യൂസിയത്തിന്റെ ഭാഗമായി പയ്യന്നൂരിലും പരിസരങ്ങളിലുമായി നടന്ന സർവേയിൽ ഇരുന്നൂറോളം പുരാവസ്തുക്കൾ ശേഖരിച്ചു കേരള പുരാവസ്തു വകുപ്പും കേരള മ്യൂസിയവും സംയുക്തമായാണ് സർവേക്ക് നേതൃത്വം നൽകിയത്

മൂന്നാറിലും പൂപ്പാറയിലും എത്തുന്നതിന് കിലോമീറ്ററു കൾ സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണെന്ന് സമിതിയുടെ നേതൃത്വത്തിൽ ചേർന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു നിലമ്പൂർ മുണ്ടേരി ആദിവാസി കോളനിയിൽ തൂക്കുപാലം യാഥാർഥ്യമായി ചാലിയാർ പുഴയ്ക്ക് കുറുകെയുണ്ടായിരുന്ന പാലം കഴിഞ്ഞ ഓഗസ്റ്റിലെ പ്രളയത്തിൽ തകർന്നതിനെത്തുടർന്ന് ഒറ്റപ്പെട്ട നില യിലായിരുന്നു കോളനി നിവാസികൾ പാലം ജില്ലാ കളക്ടർ ജാഫർ മാലിക് കഴിഞ്ഞദിവസം നാടിന് സമർപ്പിച്ചു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമകേസുകളിൽ സമയബന്ധിതമായ നിയമോ പദേശം നൽകാൻ വയനാട് ജില്ലാ കളക്ടർ എ ആർ അജയകുമാർ സ്പെഷ്യൽ പബ്ലിക് പ്രൊസിക്യൂട്ടർക്ക് നിർദേശം നൽകി കളക്ട്രേറ്റ് ചേമ്പറിൽ പട്ടിക ജാതി പട്ടിക വർഗ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമ കേസുകളുമായി ബന്ധപ്പെട്ട് നടന്ന യോഗത്തിലാണ് നിർദ്ദേശം